ഒറ്റക്കെട്ടായിതന്നെ നിൽക്കുമെന്ന് ബി ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത്ഷാ

എതിരെന്ന് മുഖ്യമന്ത്രി പീണറായി വിജയൻ പ്രസ്താവന മൌല്പിക്ടാവകാശ ലംഘനമെന്നും മുഖ്യമന്ത്രി

മേഖലയിൽപ്രവർത്തിക്കുന്ന സമിതികളുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജിതമാക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം

ദിനത്തിലും എറണാകുളം മുന്നിൽ അൻസിയും അഭിനവും വേഗമേറിയ താരങ്ങൾ

ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത്ഷാ കണ്ണൂരിൽ ബി ജെ പി ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തശേഷം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

നടപ്പാക്കാണ്കുന്ന വിധി മാത്രം പറഞ്ഞാൽ മതി കോടതി എന്ന അമ്മിത്ഷായുടെ പ്രസ്താവന ഭരണഘടന ഉറപ്പുനൽകുന്ന മൌ്ലികാവകാശങ്ങൾ നടപ്പാക്കാനുള്ളതല്ല എന്ന സന്ദേശമാണ് നൽകുന്നത്

നാളെ ആരംഭിക്കുന്ന പതിമൂന്നാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ജപ്പാനിൽ എത്തിയത്

സുനിൽകുമാർ സംസ്ഥാനത്ത് പ്രളയാനന്തരകാർഷിക പുനരുദ്ധാരണത്തിനായി ദേശീയ ഗ്രാമീണതൊഴിലുറപ്പുപദ്ധതി പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി വി

പുനർജനി കാർഷിക പുനരുദ്ധാരണ ഇടുക്കി ജില്ലാതല കർമ്മ പരിപാടി കമ്പിളികണ്ടത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പ്രളയത്തിൽ തോടു കരകവിഞ്ഞൊഴുകി കൃഷിനാശമൂണ്ടായ പുല്ലുകണ്ടം പാടശേഖരത്തിലെ പുനർജനി പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു കാർഷിക്ക് മേഖലക്ക് വലിയ നാശമുണ്ടായസാഹചര്യത്തിൽ കൃത്യമായ ശാസ്ത്രീയ സമീപനത്തിലൂടെ കൃഷി്മേഖ്ല് പുനസൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി

ഇത്തരം ഭ്രാന്തമായ പ്രവർത്തികൾക്ക് എതിരായി ജനങ്ങൾ ഉണരേണ്ടതാണെന്നും മന്ത്രി കൂട്ടിചേർത്തു ആശ്രമത്തിനുനേരെ നടന്ന ആക്രമണത്തിൽ ശക്തമായി അപലപിക്കുന്നതായി മന്ത്രി കെ

ശൈലജയും മന്ത്രി കെ രാജുവും അറിയിച്ചു

ഗതാഗതമന്ത്രി എ

ബസ് വ്യവസായത്തിലെ പ്രതിസന്ധി പഠിക്കാൻ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഇന്ധനവില വർദ്ധിച്ചതിനെ തുടർന്ന് യാത്രാനിരക്ക് വർധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബസുടമകൾ സമരം പ്രഖ്യാപിച്ചത്

പൊതുവിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമെന്ന നിലയിലേക്ക് കേരളം വളരുകയാണെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ്

ട്ട്അടുത്ത വർഷം ജൂൺ ഒന്നിന് സംസ്ഥാനത്തെ പുദ്ധി ഗവൺമെന്റ് സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുമെന്നും അതോടൊപ്പം ആധുനിക ്ശാസ്ത്രീയ് പ്ലാറ്റ്യപദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് ആധുനിക വ്യക്തമാക്കി വിദ്യാഭ്യാസം നൽക്കൂന്നു ഇടങ്ങളായി പൊതുവിദ്യാലയങ്ങളെ മാറ്റുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ട്ടടടടടടട ബാലാവകാശ കമ്മീഷൻ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സമിതികൾ പ്രവർത്തനം കൂടുതൽ ഊർജ്ജിതമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച തദ്ദേശ സ്വയംഭരണ ബാല സംരക്ഷണ സമിതി ് ശാക്തീകരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ശാരീരിക മാനസിക പീഡനങ്ങൾക്കപ്പുറം ലൈംഗിക പീഡനത്തിനും നിരവധി കുട്ടികൾ ഇരയാവുന്നെന്നും പൊതു ഇടങ്ങളിൽപോലും കുട്ടികൾക്ക് അരക്ഷിതാവസ്ഥയുണ്ടാവുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതു തടയാൻ മുതിർന്നവർ ജാഗ്രത പുലർത്തണമെന്നും ശ്രീ പിണറായി വിജയൻ നിർദ്ദേശിച്ചു

ഹൈക്കോടതി ജാമ്യ വ്യവസ്ഥ പ്രകാരം വൈക്കം ഡി

പി ക്ക് മുൻപാകെയാണ് ബിഷപ്പ് ഹാജരായത് വൈദികന്റെ മരണം സംബന്ധിച്ച് പ്രതികരിക്കാനില്ലെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ ഇക്കോടൂറിസം വോയിസ് കേരളത്തിലെ ഇക്കോടൂറിസം കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തികൊണ്ട് വിനോദസഞ്ചാര വകുപ്പ് തയ്യാറാക്കിയ മൈക്രോ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ടൂറിസം വകുപ്പു മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവ്വഹിച്ചു

വിനോദ സഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുന്ന യാത്രാവിവരങ്ങളും പാക്കേജുകളടക്കമുള്ളവയുടെ വിശദാംശങ്ങളും വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൈലന്റ്വാലി ഇരവികുളം ദേശീയോദ്യാനം പറമ്പിക്കുളം പെരിയാർ എന്നീ കടുവാസങ്കേതങ്ങൾ ചിന്നാർ ചെന്തുരുണി വന്യമൃഗസങ്കേതം ചെമ്പ്ര കൊടുമുടി എന്നിവയെ കുറിച്ചും വെബ്സൈറ്റിൽ വിശദ വിവരങ്ങളുണ്ട്

ൃഴ എന്ന വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ഇതിന്റെ ലിങ്ക് ലഭ്യമാണ്

ആലപ്പൂഴ്ച്ച ചങ്ങനാശ്ശേരി റോഡിന് സമാന്തരമായുളള എ സി

ടടടടടടടടടട ഭാഷാപ്രതിജ്ഞ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ കേരളപ്പിറവി ദിനത്തിൽ ഭാഷാ പ്രതിജ്ഞയെടുക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരമാവധി മലയാളികളെ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്ത ഭൂമി മലയാളം പദ്ധതിയുടെ ഭാഗമായാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രതിജ്ഞയെടുക്കുന്നത്

മേളയിൽ സി